ചില നേതാക്കന്മാരുടെ പരാമർശങ്ങൾ മേഖലയിൽ സമാധാനത്തിന് വിലങ്ങുതടിയെന്ന് പ്രദ്യാനമന്ത്രി നരേന്ദ്രമോദി

കട കമ്പോളങ്ങളും ഗവൺമെന്റ് ഓഫീസുകളും പ്രവർത്തിച്ചു തുടങ്ങി

ശ്രീകാന്ത് ബി സായ് പ്രണീത് എച്ച്

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയൽ

ഇന്ത്യ വിരുദ്ധ സംഘർഷങ്ങളിലൂടെ ചില നേതാക്കളുടെ സമീപനം മേഖലയിലെ സമാധാനത്തിന് യോജിക്കുന്ന പ്രവൃത്തിയല്ലെന്ന് ഡോണൾഡ് ട്രംപ് പറഞ്ഞു തീവ്രവാദ രഹിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പ്രാധാന്യം ചർച്ചകൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു ഇന്ത്യൻ നടപടിയ്ക്കെതിരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീ

ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ കുറച്ചുകൊണ്ട് വരുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ചർച്ച നടന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളുമായി അസമിലെ പൌരത്വപട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു കനത്ത പ്രളയത്തിൽ ഉത്തരാഖണ്ഡിനുണ്ടായ നാശനഷ്ടങ്ങൾ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിങ് റാവത്ത് ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു വിശദവിവരങ്ങൾ ആരാഞ്ഞ ശ്രീ

അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യവും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യ തുടർന്നും പിന്തുണ നൽകുമെന്ന് ശ്രീ

സ്വാതന്ത്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന അഫ്ഗാൻ ജനതയ്ക്ക് അദ്ദേഹം ആശംസകളും നേർന്നു ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ഹമിദ് കർസായി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിലുള്ള സന്തോഷവും പങ്കുവച്ചു

ലാത്പിയൻ തലസ്ഥാനമായ റിഗയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി

നാലാം വൃവസായ വിപ്ലവത്തിന്റെ ഭാഗമായി ഐ ടി സാങ്കേതികം നിർമ്മിത ബുദ്ധി നൂതനാശയങ്ങൾ തുടങ്ങിയ രംഗങ്ങളിൽ ഇന്ത്യയ്ക്കും ലാത്വിയയ്ക്കും ഏറെ നിർണ്ണായകമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ബാൾട്ടിക് രാജ്യങ്ങളിലൂടെയുള്ള സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഉപരാഷ്ട്രപതി ലാത്വിയയിൽ എത്തിയത്

ജയശങ്കർ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ എത്തി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഡോ

ഉഭയകക്ഷി വിഷയങ്ങൾ സംബന്ധിച്ച് ഇരുവരും ഇന്ന് ചർച്ച നടത്തും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത്

പതിനെട്ടായിരം കോടി രൂപയുടെ മൂന്ന് പുതിയ മെട്രോ ലൈനിനാണ് അംഗീകാരം നൽകിയത് മുംബൈ മെട്രോപൊളിറ്റൻ റീജൺ ഡെവലപ്മെന്റ് അതോറിറ്റി എം

എസ് ടി ലൈനുമാണ് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും താഴ്വരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് പൊതു വിവിര വിഭാഗം ഡയറക്ടർ സയ്യിദ് സെറിഷ് അസ്ഗർ ഇന്നലെ ശ്രീനഗറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ശ്രീനഗറിൽ സ്കൂളുകൾ തുറന്നു കശ്മീരിൽ മുഴുവൻ സ്കൂളുകളും നാളെ മുതൽ തുറക്കും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ചിലയിടങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സൌകര്യം തടസ്സപ്പെട്ടതെന്ന് ജമ്മു ഡിവിഷണൽ കമ്മിഷണർ സഞ്ജീവ് വർമ്മ അറിയിച്ചു

ശ്രീനഗറിൽ ലാന്റ് ഫോൺ ബന്ധം പുനഃസ്ഥാപിച്ചതായി ഗവൺമെന്റ് വക്താവ് രോഹിത് കൻസാൽ അറിയിച്ചു

മുഹമ്മദ് സഹൂർ ഹാഷ്മി എന്നാണ് യഥാർത്ഥ പേര്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലതാ മങ്കേഷ്കർ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു വിഖ്യാത സംഗീതകാരന്റെ വേർപാട് ഏറെ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

കാലിഫോർണിയയിലെ ലോസ് എയ്ഞ്ചൽസിൽ സാൻ നിക്കോളാസ് ദ്വീപിലാണ് ഞായറാഴ്ച പരീക്ഷണം നടത്തിയത്

ആണവ ആയുധങ്ങൾ വഹിക്കാത്ത മിസൈലാണ് ഇതെന്നും യു

മധ്യദൂര ആണവോർജ്ജ ഉടമ്പടിയുടെ തകർച്ചയെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ ആണവോർജ്ജ ശേഷി ഇരട്ടിപ്പിക്കുന്നതിന്റെ സൂചനയായാണ് ഇതിനെ വിലയിരുത്തുന്നത്

പതിനായിരംപേരെ താഴ്ന്ന മേഖലകളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി

ഗുരുതരമായി പരിക്കേറ്റവരെ വ്യോമമാർഗ്ഗം ഡെറാഡൂണിലേക്ക് മാറ്റിയിട്ടുണ്ട്

രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണ്

സായ് പ്രണീത് എച്ച് എസ് പ്രണോയ് എന്നിവർ പുരുഷവിഭാഗം സിംഗിൾസിൽ രണ്ടാം റൌണ്ടിൽ കടന്നു

മുൻ ലോക ഒന്നാം നമ്പർ താരമായ ശ്രീകാന്ത് അയർലന്റിന്റെ ന്യാറ്റ് കുവനെയാണ് തോൽപ്പിച്ചത്

സായ് പ്രണീത് കാനഡയുടെ ജേസൺ ആന്റണി ഹോഷ്യുവിനെ പരാജയപ്പെടുത്തി

എച്ച് എസ് പ്രണോയ് ഫിൻ പ്രന്റിന്റെ ഈറ്റു ഹിനോയ് യെ തോൽപ്പിച്ചു

വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ മേഘ്ന ജക്കംപുടി എസ് പൂർവിഷ റാം സഖ്യം ഗ്വാട്ടിമാലയുടെ ഡയാന കോർലെറ്റോ നിക്തേ അലേജൻഡ്ര സഖ്യത്തെയാണ് തോൽപ്പിച്ചത്

വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ എൻ

നാളെ പി വി സിന്ധുവും സയ്ന നെഹ്വാളും മൽസരത്തിനിറങ്ങും

ഏലപ്പാറയിൽ നിന്നുമാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്

ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ മലപ്പുറം കവളപ്പാറയിൽ ഇന്നലെ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താനായില്ല